ജയരാജൻ

ശ്രീധരൻപിള്ള അണ്ണാഡി എം

ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ശുദ്ധിക്രിയ ചെയ്ത് സന്നിധാനത്ത് വീണ്ടും നട തുറന്നു പഞ്ചപുണ്യാഹം ബിംബശുദ്ധിക്രിയ പ്രാസാദ ശുദ്ധി പ്രായ ശ്ചിത്ത ഹോമം കലശം വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തം എന്നീ പരിഹാര ക്രിയകൾക്കുശേഷമാണ് നട തുറന്നത്

ഇന്നു പുലർച്ചെയാണ് മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗ്ഗയും കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും ശബരി മലയിൽ ദർശനം നടത്തിയത് ഇതേ തുടർന്ന് തന്ത്രിയുടെ നിർദ്ദേശ പ്രകാ രമാണ് ശുദ്ധിക്രിയകൾക്കായി മേൽശാന്തി നട അടച്ചത് ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയത് വസ്തുതയാണെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുപ്രീംകോടതി വിധി അനു സരിച്ച് അവർക്ക് സംരക്ഷണം നൽകേണ്ടത് പൊലീസിന്റെ ചുമതലയാ ണ് നേരത്തെ സംരക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് അവർ ദർശനം നട ത്താതെ മടങ്ങിയതെന്നും പിണറായി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്ന് മന്ത്രി ഇ

ജയരാജൻ തിരുവനന്ത പുരത്ത് പറഞ്ഞു യുവതീപ്രവേശനത്തെതുടർന്ന് തന്ത്രി നടയടച്ചത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്നും ഭക്തജനങ്ങളെ തന്ത്രി വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ തന്ത്രിക്ക് അധികാരമില്ല ഇക്കാര്യത്തിൽ ബിജെപി ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമി ല്ലെന്നും മന്ത്രി വൃക്തമാക്കി യുവതീ പ്രവേശനത്തെതുടർന്ന് ശബരിമല നടയടച്ചതിനുള്ള മറുപടി തന്ത്രി കോടതിയിൽ പറയട്ടെ എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറ ഞ്ഞു ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് യുവതികൾതന്നെയാണെന്നും മന്ത്രി തിരുവന്തപുരത്ത് അറിയിച്ചു സന്നിധാനത്ത് യുവതികളെ എത്തിച്ച് ആചാരലംഘനം നടത്തിയതി ലൂടെ സംസ്ഥാന ഗവൺമെന്റ് വിശ്വാസികളോട് യുദ്ധപ്രഖ്യാപനം നട ത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആരോ പിച്ചു കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസുവേദനിപ്പിച്ച ഗൂഢാലോ ചനയാണ് ഗവൺമെന്റ് നടത്തിയതെന്ന് അദ്ദേഹം കോട്ടയം പാത്തിമു ട്ടത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

വനിതാ മതിൽ നടത്തിയത് ആചാരലം ഘനത്തിനാണെന്ന് ഈ സംഭവത്തോടെ തെളിഞ്ഞു

എഫിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി തികഞ്ഞ പരാജയ മാണെന്ന് ശബരിമലയിൽ ഇന്നുണ്ടായ പ്രശ്നത്തിലൂടെ കൂടുതൽ വ്യക്ത മായെന്ന് കെ

പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി ശബരിമല പ്രശ്നത്തെ സങ്കീർണ്ണമാക്കാനാണ് സി

ഐ

ഉം ബിജെപിയും ശ്രമിക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽനിന്ന് ജനശ്രദ്ധ തിരി ച്ചുവിടാനാണിത് കോൺഗ്രസ് എക്കാലത്തും വിശ്വാസികൾക്കൊപ്പമാ ണെന്നും ശബരിമല സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കുമെന്നും മുല്ലപ്പള്ളി ഡൽഹിയിൽ അറിയിച്ചു ശബരിമലയെ തകർക്കാൻ ഗവൺമെന്റ് ആസൂത്രിതമായാണ് യുവ തികളെ സന്നിധാനത്ത് കയറ്റിയതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശബരിമലയെ തകർക്കാൻ ഏത് ഹീനകൃത്യവും ചെയ്യുമെന്ന് ഗവൺമെന്റിന്റെ ഈ നടപടിയിലൂടെ വൃക്ത മായതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു അയ്യപ്പ ഭക്തരെ ഗവൺമെന്റ് വഞ്ചിച്ചതായും ശ്രീധരൻപിള്ള കുറ്റ പ്പെടുത്തി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ മനസിനെ മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമലയിലുണ്ടായത് ഇതിനെതിരെ ശക്തമായ പ്രതി ഷേധം ഉയരണമെന്നും ശ്രീധരൻപിള്ള ആവശൃപ്പെട്ടു ശബരിമലയിലുണ്ടായ ആചാര ലംഘനം ഗവൺമെന്റ് ഗൂഢാലോച നയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി

ഇതിനെതിരെ സംസ്ഥാനത്ത് രണ്ടുദിവസം നാമജപ പ്രതി ഷേധമടക്കം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ബിജെപി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാരുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെ യുമാണ് ഗവൺമെന്റ് പ്രണപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി തീക്കൊ ള്ളികൊണ്ട് തലചൊറിയുകയാണെന്നും രമേശ് കുറ്റപ്പെടുത്തി ശബരിമലയിൽ നടയടച്ചത് സംബന്ധിച്ച് തന്ത്രി ദേവസ്വംബോർഡിനെ അറിയിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് എ

തുടർ നടപടികൾ തന്ത്രി യുമായും ബോർഡ് അംഗങ്ങളുമായും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

നിയമയുദ്ധം തുടരുമെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻനായർ പെരുന്നയിൽ പറഞ്ഞു ആചാ രലംഘനമുണ്ടായപ്പോൾ നടയടച്ചതിന് തന്ത്രിയോട് നന്ദി അറിയിക്കുന്ന തായും അദ്ദേഹം മന്നം ജയന്തി ആഘോഷചടങ്ങിൽ പറഞ്ഞു ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിന്റെ പേരിൽ നടയടച്ചത് സുപ്രീംകോടതി വിധിയുടെ പരസ്യമായ ലംഘനമാണെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു നിയമവാഴ്ച ലംഘിക്കാൻ ആരെയും അനുവദിക്കരുതെന്നും വിധി നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ടവർതന്നെ അത് ലംഘിക്കാൻ ശ്രമി ക്കുകയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റിനു മുന്നിൽ ബി

പി നടത്തുന്ന നിരാഹാര സമരം ഒരുമാസം പിന്നിട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ശിവരാജന്റെ സമരം ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടന്നു അണ്ണാ ഡി എം

തെലുഗുദേശം അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ലോക് സഭയും രാജ്യസഭയും ഉച്ചവരെ നിർത്തിവെച്ചു കർണ്ണാ ടക കാവേരിനദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്പക്കാർഡുകളുമായാണ് ഇരുസഭകളിലും അണ്ണാ ഡി എം

ഇതോടൊപ്പം തെലുഗുദേശം എം

മാരും ആന്ധ്രപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിക്ക് പ്രത്യേക സാമ്പത്തികസഹായം ആവശൃപ്പെട്ട് നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ അഭ്യർത്ഥന മാനിക്കാതെ ബഹളം തുടർന്നപ്പോൾ സഭാനടപടികൾ ഉച്ച വരെ നിർത്തിവെച്ചതായി സുമിത്രാമഹാജൻ അറിയിച്ചു രാജ്യസഭ ചേർന്ന ഉടൻ അണ്ണാ ഡി എം

റഫേൽ ഇടപാട് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട ണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും നടുത്തളത്തിലിറങ്ങിയതോടെ സഭ അൽപനേരത്തേക്ക് നിർത്തിവെച്ചു ഇടവേളയ്ക്കുശേഷം സഭാ നടപടി കൾ പുനരാരംഭിച്ചെങ്കിലും വീണ്ടും അണ്ണാഡി എം

അംഗങ്ങളുടെ ബഹളത്തെത്തുടർന്ന് സഭ ഉച്ചവരെ നിർത്തിവെച്ചതായി രാജ്യസഭാ അധ്യ ക്ഷൻ എം വെങ്കയ്യനായിഡു അറിയിക്കുകയായിരുന്നു മുത്തലാഖ് നിരോധന ബിൽ ഇന്ന് വീണ്ടും രാജ്യസഭയിൽ അവതരി പ്പിക്കും നിയമമന്ത്രി രവി ശങ്കർ പ്രസാദ് ബിൽ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ലോക്സഭ കഴിഞ്ഞാഴ്ച ബിൽ പാസ്സാക്കിയിരുന്നു ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധിച്ചിരുന്നു

റഫേൽ ഇടപാടിലെ ക്രമക്കേടുകൾ പരിശോധിക്കണമെന്നാ വശ്യപ്പെട്ട് നൽകിയ ഹർജികൾ തള്ളിയ വിധിക്കെതിരെയാണ് പുനപരി ശോധനാ ഹർജി സുപ്രീംകോടതിയിൽ ഗവൺമെന്റ് മുദ്രവെച്ചുനൽകിയ കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി ഉണ്ടായത് എന്നാൽ കുറിപ്പ് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് നൽകിയതല്ലെന്ന് ഹർജിയിൽ പറയുന്നു

തുറന്ന കോടതിയിൽ ഹർജിയിലെ വാദം കേൾക്കണമെന്നും അവർ ആവ ശ്യപ്പെട്ടു ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ സിഡ്നിയിൽ പുലർച്ചെ അഞ്ചിന് മത്സരം തൂടങ്ങും

അന്തരിച്ച സി

ഐ എം നേതാവും മുൻ എം

എയുമായ സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം വൈകീട്ട് കളമശേരി മെഡിക്കൽ കോളജിന് കൈമാറും

ഐ

സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ എന്നിവർ രാവിലെ വടുതലയിലെ വീട്ടിലെത്തി ബ്രിട്ടോയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ആരോഗ്യ രംഗത്ത് കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി കെ

ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റിയായി ഉയർത്തുന്നതും പ്രാഥമികാരോഗ്യകേന്ദ്രങ്ങളെ കുടും ബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതും ഇതിന്റെ ഭാഗമാണ് കണ്ണൂർ ഇരി ട്ടി താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശിവഗിരിയിൽ തീർത്ഥാടനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ ആളുകൾ കുറഞ്ഞത് വനിതാമതിൽ മൂലമല്ലെന്ന് എസ്

യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തീർത്ഥാടനത്തിന്റെ അവസാനദിവസം പൊതുവെ തീർത്ഥാടകർ കുറയാറുണ്ടെന്നും ശിവഗി രിമഠവും എസ്

യോഗവും തമ്മിൽ നല്ല ബന്ധമാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ വൃക്തമാക്കി കൊച്ചി പെരുമ്പാവൂരിൽ പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ തീപിടുത്തം ഉപ യോഗിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനാണ് പുലർച്ചെ തീപ്പിടിച്ചത് ആളപായമില്ല നാലുയൂണിറ്റ് ഫയർഫോഴ്സ് എത്തി യാണ് തീ നിയന്ത്രണവിധേയമാക്കിയത് മന്ത്രി കെ

ശൈലജയ്ക്കെതിരെ കണ്ണൂർ ഇരിട്ടിയിൽ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച മൂന്ന് യുവമോർച്ചാപ്രവർത്തകരെ പൊലീസ് കസ്റ്റ ഡിയിലെടുത്തു രാവിലെ ഇരിട്ടിയിൽ ഒരു ചട്ടങ്ങിൽ പങ്കെടുക്കാനെത്തി യതായിരുന്നു മന്ത്രി

അതിർത്തിയിൽ സംയുകത പരിശോധന നടത്താൻ തമിഴ്നാട് കേരള സംസ്ഥാങ്ങളിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടയമേള ശനിയാഴ്ച നടക്കും മുൻസിപ്പൽ ടൌൺ ഹാളിൽ മന്ത്രി ഇ ച്ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ എ

ബാലൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുക്കും അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാരെ മുലയൂട്ടൽ പരിശീലിപ്പിക്കാനും ഗർഭിണികളെ പരിചരിക്കാനും ലക്ഷ്യമിട്ടുള്ള വത്സല്യ സ്പർശം പദ്ധതിക്ക് തുടക്കമായി കേന്ദ്ര സഹായത്തോടെ പട്ടിക വർഗ്ഗ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് കോഴിക്കോട് കുന്ദമംഗലം എൻ ഐ ടി അഗസ്ത്യൻമുഴി റോഡ് റബറൈസ് ചെയ്യാൻ പതിനാല് കോടി രൂപയുടെ ഭരണാനുമതി നൽകി വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലങ്ങളിൽ റോഡ് ഉയർത്തിയും വീതി പരമാവധി പ്രയോജനപ്പെടുത്തിയുമായിരിക്കും നവീകരണം